രാജ്യത്ത് കോവിഡ് വ്യാപനം അതിരൂക്ഷമായി തുടരുന്നു

പത്ത് പന്ത്രണ്ട് ക്ലാസുകളിലെ സി ബി എസ് ഇ പരീക്ഷകൾ മാറ്റി

അതേസമയം രാജ്യത്ത് കോവിഡ് വാക്സിനേഷൻ യജ്ഞം വിപുലമായി തുടരുകയാണ്

അതിനിടെ രാജ്യത്ത് കോവിഡ് വാക്സിൻ ക്ഷാമമില്ലെന്നും വാക്സിനേഷൻ യജ്ഞത്തിനുളള സംസ്ഥാനങ്ങളുടെ ആസൂത്രണം മെച്ചപ്പെടേണ്ടതാണെന്നും കേന്ദ്രസർക്കാർ വൃക്തമാക്കി കോവിഡ് കേസുകൾ ഉയരുകയാണെങ്കിലും രാജ്യവ്യാപക ലോക്ഡൌൺ നടപ്പിലാക്കില്ലെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു

ന്യൂസ് ഡസ്ക് ആകാശവാണി

വെങ്കയ്യനായിഡു പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ നാളെ ഗവർണ്ണർമാരുമായും ലഫ്റ്റനന്റ് ഗവർണ്ണർമാരുമായും സംവദിക്കും പശ്ചാത്തലത്തിലാണ് വിഡീയോ കോൺഫറൻസിങ്ങിലൂടെ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നത്

കോവിഡ് കേസുകൾ ഫലപ്രദമായി പരിഹരിക്കുന്നതിന് മൈക്രോകണ്ടെയ്ൻമെന്റ് സോണുകൾ സൃഷ്ടിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് അദ്ദേഹം കൂടിക്കാഴ്ചയിൽ ഊന്നിപ്പറഞ്ഞിരുന്നു

ഏഴ് പുതിയ മ്രുന്ന് നിർമ്മൂാണ കേന്ദ്രങ്ങൾക്ക് കൂടി അനുമതി നൽകിയിട്ടുണ്ട്

വാക്സിൻ സ്വീകരിച്ച ആറ് സ്ത്രീകളിലാണ് രക്തംകട്ട പിടിച്ചതെന്ന് സെന്റേഴ്സ് ഫോർ ഡിസീസ് കൺട്രോൾ ആന്റ് പ്രിവെൻഷൻ ഫുഡ് ആന്റ് അഡ്മിനിസ്ട്രേഷൻ പുറത്തിറ്ക്കിയ സംയുക്ത പ്രസ്താവനയിൽ പറയുന്നു

അതിരാവിലെ ആരംഭിച്ച സ്നാനത്തിൽ ഏഴ് മണിവരെ മാത്രമാണ് പൊതുജനങ്ങൾക്ക് ഗംഗാ തടത്തിൽ അനുമതി ഉണ്ടായിരുന്നത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ലക്ഷകണക്കിന് വിശ്വാസികളാണ് ചടങ്ങിൽ പങ്കെടുത്തത്

കോവിഡ് പ്രതിരോധം മുൻനിർത്തി നിരവധി നിയന്ത്രണങ്ങളാണ് ഭരണകൂടം ഏർപ്പെടുത്തിയിട്ടുള്ളത്

ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് അസോസിയേഷന്റെ സമ്മേളനത്തെ ്വെർച്ചലായി അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം വിദ്യാഭ്യാസപരവും സ്ഥാപനപരവുമായ കരുത്ത് ലക്ഷ്യമാക്കിയാണ് വിദ്യാഭ്യാസ നയം ആവിഷ്കരിച്ചത് വിദ്യാർത്ഥികളിൽ സ്വാശ്രായാവബോധം ശക്തമാക്കണമെന്നും അവരുടെ പങ്കാളിത്തം വിനിയോഗിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു

പ്രധാന ക്ഷേത്രങ്ങളിൽ വിഷുക്കണി ഒരുക്കിയിരുന്നെങ്കിലും കോവിഡിന്റെ പശ്ചാത്തലത്തിൽ തിരക്ക് കുറവായിരുന്നു സാമൂഹിക അകലം പാലിച്ചും സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിച്ചുമാണ് മലയാളികൾ വിഷു ആഘോഷിച്ചത് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും മലയാളികൾക്ക് വിഷു ആശംസകൾ നേർന്നു

രാജ്യതലസ്ഥാനത്തും വിവിധ സംസ്ഥാനങ്ങളിലും അദ്ദേഹത്തിന്റെ ജന്മദിനം വിപുലമായി ആചരിച്ചു

വെങ്കയ്യനായിഡുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അംബേദ്കറുടെ സേനവങ്ങൾ അനുസ്മരിച്ചു

ബി എസ് ഇ ബോർഡ് പരീക്ഷകൾ മാറ്റിവച്ചു

പത്താംക്ലാസിൽ ഇതുവരെയുള്ള പ്രകടനമികവ് അടിസ്ഥാനമാക്കി മാർക്ക് നൽകും അതിൽ തൃപ്തിയില്ലെങ്കിൽ പിന്നീട് പരീക്ഷ എഴുതാം

ജൂൺ ഒന്നുവരെയുള്ള സാഹചര്യം വിലയിരുത്തി പന്ത്രണ്ടാംക്സാസ് പരീക്ഷയുമായി ബന്ധപ്പെട്ട തീരുമാനം എടുക്കും

വിദ്യാഭ്യാസ മന്ത്രി രമേശ് പൊക്രിയാൽ ഉദ്യോഗസ്ഥർ എന്നിവരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ ചർച്ചയിലാണ് പുതിയ തീരുമാനം ഉണ്ടായത് മെയ് നാല് മുതൽ പരീക്ഷകൾ നടത്താനായിരുന്നു നേരത്തെ സി ബി എസ്

എന്നാൽ കോവിഡ് വ്യാപനം ചൂണ്ടിക്കാട്ടി പല സംസ്ഥാനങ്ങളും ബോർഡ് പരീക്ഷയ്ക്കെതിരെ എതിർപ്പുമായി രംഗത്ത് വന്നിരുന്നു

ന്യൂസ് ഡസ്ക് ആകാശവാണി

എൽ ക്രിക്കറ്റിൽ ഇന്ന് ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദ് പോരാട്ടം

ചിദംബരം സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുന്നത് ടോസ് നേടിയ ഹൈദരാബാദ് ബൌളിംഗ് തിരഞ്ഞെടുത്തു

ഇന്ത്യയും ലോകവും അഭിമുഖീകരിക്കുന്ന പട്ടിണിയും രോഗങ്ങളുമായും ബന്ധപ്പെട്ട പ്രശ്ന പരിഹാരത്തിന് പദ്ധതി സ്ഹായിക്കുമെന്ന് ആരോഗ്യമന്ത്രി ഡോ

ജന്മവാർഷികാഘോഷങ്ങളോടനുബന്ധിച്ച് ബി ജെ

ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നാല് കോടിയോളം പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ബിരുദാനന്തര സ്കോളർഷിപ്പുകൾ നൽകി വരുന്നു

ആണവനിലയത്തിൽ നിന്നും മലിനജലം പുറന്തള്ളേണ്ടത് അത്യാവശ്യമാണെന്നും ആദ്യഘട്ടം രണ്ട് വർഷത്തിനകം നടക്കുമെന്നും ജപ്പാൻ വ്യക്തമാക്കി എന്നാൽ ജപ്പാന്റെ നടപടി നിരുത്തരവാദപരമാണെന്ന് ചൈന പ്രതികരിച്ചു